മുൻ മന്ത്രി കെ

ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നിയമപ്രകാരമുളള അവകാശങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായിരുന്നു പരിശോധന

ശ്രീരാമകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ മുഖ്യമന്ത്രിമാരായ വി

അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു